അവകാശം ഉറപ്പാക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി

ജമ്മു കശ്മീരിലെ ്കു്ൽഗാമിൽ ഭീകരരുടെ ഒളിത്താവളം സുരക്ഷാ സേന ത്കർത്തു

ഇന്ത്യ ഓസ്ട്രേലിയ ഏകദിന പരമ്പരയിലെ അവസാന മത്സരം അൽപ്പസമയത്തിനകം

നേപ്പാളിൽ നടക്കുന്ന സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ ഇന്ന് മാലിദ്വീപിനെ നേരിടും

ഫോർ റിക്വസ്റ്റ് ഫോർ ഡെമോക്രസി എന്ന ബ്ലോഗിലാണ് അദ്ദേഹം ഈ കാര്യം അഭ്യർത്ഥിച്ചത് ഓൺലൈനായോ അതാത് ബൂത്ത് ലെവൽ ഉദ്യോഗസ്ഥർ മുഖേനയോ എത്രയും വേഗം രജിസ്ട്രേഷൻ നടത്തണമെന്നും പ്രധാനമന്ത്രി അഭ്യർത്ഥിച്ചു വോട്ടർ പട്ടികയിൽ പ്പേര് ഉൾപ്പെടുത്തിയിട്ടുണ്ടൊയെന്ന് ഓരോ സമ്മതിദായകനും ഉറപ്പ് പ്രുവരുത്തണം

സമൂഹത്തിൽ തുല്യത ഉറപ്പാക്കുന്നത് പ്രോത്സാഹിപ്പിക്കുന്നതിനാണ് ഈ നടപടിയെന്നും വ്യക്തമാക്കി

നിലവിലെ സംവരണങ്ങളിൽ ഉൾപ്പെടാത്ത സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന ആളുകളുടെ ഉന്നമനമാണ് ഇതിലൂടെ കേന്ദ്ര ഗവൺമെന്റ് ലക്ഷ്യമിട്ടതെന്നും സത്യവാങ്മൂലം വ്യക്തമാക്കുന്നു

ഇതേ തുടർന്നാണ് ഗവൺമെന്റ് കോടതിയിൽ നിലപാട് വ്യക്തമാക്കിയത്

കുറഞ്ഞത് ആറ് മാസം വരെ സർവ്വീസ് ശേഷിക്കുന്നവരെയും ഡി ജി

ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായ ബഞ്ചിന്റേതാണ് നിരീക്ഷണം

യുടെ ശൂപ്യാർശ പ്രകാരവും മികവിന്റെ അടിസ്ഥാനത്തിലുമായിരീക്കണം ഡി ജി

നിയമനത്തിനുള്ള പാനൽ തയ്യാറാക്കേണ്ടതെന്നും കോടതി ഉത്തരവിട്ടു ഉത്തർപ്രദേശ് മുൻ ഡി ജി

പ്രകാശ് സിങ് സമർപ്പിച്ച ഹർജി പരിഗണിക്കവെയാണ് പരമോന്നത കോടതിയുടെ ഉത്തരവ്

യും അസം ഗണ പരിഷത്ത് എ

മുതിർന്ന ബി ജെ പി നേതാവ് റാം മാധവ് എ ജി

അധ്യക്ഷൻ അതുൽ ബോറ എക്സിക്യൂട്ടീവ് പ്രസിഡന്റ് കേശബ് മഹന്ദ എന്നിവരുടെ നേതൃത്വത്തിൽ ഇന്നലെ വൈകിട്ട് ഗുവാഹത്തിയിൽ ചേർന്ന യോഗമാണ് ഇതു സംബന്ധിച്ച തീരുമാനം കൈകൊണ്ടത് നോർത്ത് ഈസ്റ്റ് ഡെമോക്രാറ്റിക് അലയൻസ് കൺവീനർ ഹിമന്ത ബിശ്വ ശർമ്മയും യോഗത്തിൽ പങ്കെടുത്തു അസം അരുണാചൽപ്രദേശ് മണിപ്പൂർ മേഘാലയ എന്നീ സംസ്ഥാനങ്ങിലെ മുഖ്യമന്ത്രിമാരുമായും ശ്രീ

വടക്കു കിഴക്കൻ മേഖലയിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടിക്കാഴ്ചയിൽ ചർച്ചാ വിഷയമായി അസമിലെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുമായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ മുകേഷ് സാഹു ഇന്നലെ ഗുവാഹത്തിയിൽ ചർച്ച നടത്തി

ഇതുമായി ബന്ധപ്പെട്ട് എല്ലാ മേഖലകളിൽ നിന്നുമുള്ള ആളുകളിൽ നിന്ന് അഭിപ്രായങ്ങൾ ആരായുമെന്നും കമ്മീഷൻ കൂട്ടിച്ചേർത്തു സംസ്ഥാനത്തെ സ്ഥിതിഗതികൾ വിലയിരുത്താൻ നിയോഗിച്ച മൂന്നു പ്രത്യേക നിരീക്ഷകർ ഇന്നലെ ന്യൂഡൽഹിയിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സുനിൽ അറോറ കമ്മീഷണർമാരായ അശോക് ലവാസ സുശീൽചന്ദ്ര എന്നിവരെ കണ്ടു നിരീക്ഷകരായ എ

ഗിൽ നൂർ മുഹമ്മദ് വിനോദ് സുത്ഷി എന്നിവർ ഉടൻ തന്നെ സംസ്ഥാനം സന്ദർശിക്കണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദേശിച്ചു

മൂന്നു തലത്തിലുള്ള പരിശീലനമാണ് നടക്കുന്നത്

വൈകിട്ട് കോഴിക്കോട് കടപ്പുറത്ത് നാളെ നടക്കുന്ന ജനമഹാറാലിയുടെ ഔപചാരിക ഉദ്ഘാടനം ശ്രീ

കേരളത്തിലെ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കമാകുമെന്ന് കെ

സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ അറിയിച്ചു

അയൂബ് രത്താർ എന്നയാളെ അറസ്റ്റ് ചെയ്തു കുൽഗാമിലെ യാരിപോറ പ്രദേശത്ത് ഭീകരർ ഒളിച്ചിരിപ്പുണ്ടെന്ന വിവരം ലഭിച്ചതിനെ തുടർന്ന് സുരക്ഷ സേനയും പൊലീസും സംയുക്തമായി നടത്തിയ തിരച്ചിലിലാണ് ഒളിത്താവളം തകർത്തതെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു

ഇത് സംബന്ധിച്ച് ഐക്യരാഷ്ട്ര സഭ നിഷ്കർഷിക്കുന്ന എല്ലാ മാനദണ്ഡങ്ങളും ഇയാൾക്ക് ബാധകമാണെന്നും അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ടമെന്റ് വക്താവ് റോബർട്ട് പല്ലാഡിനോ വ്യക്തമാക്കി

തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഐക്യരാഷ്ട്രസഭയിലടക്കം ഇന്ത്യയും അമേരിക്കയും സഹകരിച്ച് പ്രവർത്തിക്കുമെന്നും വക്താവ് ഉറപ്പ് നൽകി

അസറിനെ തീവ്രവാദിയായി ആഗോള പ്രഖ്യാപിക്കണമെന്ന ആവശ്യത്തിനെതിരെ വാദങ്ങൾ സമർപ്പിക്കാനുള്ള സമയം ഇന്ന് അവസാനിക്കും

തീവ്രവാദം അതിർത്തികടന്നുള്ള ഭീകരവാദം എന്നിവ സംബന്ധിച്ച് അന്താരാഷ്ട്ര സമൂഹത്തിനുള്ള ആശങ്കകൾ പാകിസ്ഥാൻ അടിയന്തിരമായിപരിഹരിക്കണമെന്ന് സംയുക്ത പ്രസ്താവനയിൽ ഇരുവരും ആവശ്യപ്പെട്ടു

വിശദാംശങ്ങളുമായി കരോൾ എബ്രഹ്മാര്

ജി സി

യാണ് ഇതു സംബന്ധിച്ച് തീരുമാനം കൈകൊണ്ടതെന്ന് വ്യോമയാന മന്ത്രാലയത്തിന്റെ് ടിറ്റർ സന്ദേശത്തിൽ പറയുന്നു

യാത്രക്കാരുടെ സുരക്ഷയാണ് പരമ പ്രധാനമെന്നും ഇത് ഉറപ്പുവരുത്താൻ വിമാനത്തിന്റെ സുരക്ഷ സംബന്ധിച്ച് ഇതര രാജ്യങ്ങളുമായും വിമാന കമ്പനികളുമായും ചർച്ച നടത്തി വരികയാണെന്നും അറിയിപ്പിൽ പറയുന്നു എത്യോപ്യ ചൈന ഓസ്ട്രേലിയ മലേഷ്യ സിംഗപ്പൂർ ന്യൂസിലാന്റ് യു

തുടങ്ങിയ രാജ്യങ്ങൾ ഇത്തരം വിമാനങ്ങളുടെ സർവ്വീസ് തൽക്കാലികമായി നിർത്തിവയ്ക്കാൻ നേരത്തെ തീരുമാനിച്ചിരുന്നു

ന്യൂസ്ഡെസ്ക് ആകാശവാണി

പല്ലാടത്തേക്ക് കാറിൽ യാത്ര ചെയ്യുകയായിരുന്നു ഇവർ

നിലവിലെ ചാമ്പ്യൻമാരായ ഇന്ത്യ മാലിദ്വീപിനെയാണ് നേരിടുന്നത്

ചാമ്പ്യൻഷിപ്പിന്റെ കഴിഞ്ഞ നാല് പതിപ്പുകളിലും ഇന്ത്യ തോൽവി അറിഞ്ഞിട്ടില്ല

അവസാന മത്സരം ജയിച്ച് പരമ്പര സ്വന്തമാക്കാൻ ഇരു ടീമുകളും ഇറങ്ങുമ്പോൾ മത്സരം ആവേശകരമാകുമെന്ന് ഉറപ്പ് ഒരു റിപ്പോർട്ട് അഞ്ച് മത്സരങ്ങൾ ഉൾപ്പെട്ട ഏകദിന പരമ്പരയിലെ അവസാന മത്സരമാണ് ഇന്ന് ഡൽഹി ഫിറോസ് ഷാ കോട്ലാ മൈതാനത്ത് നടക്കുന്നത് പരമ്പരയിൽ രണ്ട് മത്സരങ്ങൾ വീതം ജയിച്ച് ഇരു ടീമുകളും ഒപ്പത്തിനൊപ്പം നിൽക്കുന്നതിനാൽ ഇന്നത്തെ വിജയിക്കായിരിക്കും പരമ്പര ലോകകപ്പിന് മുമ്പുള്ള ഇന്ത്യയുടെ അവസാന ഏകദിന പരമ്പരയാണ് ഇത് ആദ്യ രണ്ട് മത്സരങ്ങൾ ജയിച്ചു ഇന്ത്യ പരമ്പര സ്വന്ത്രമാക്കുമെന്ന് ആരാധകർ കരുതിയിരുന്നിടത്താണ് അവസ്മാന്യ രണ്ട് മത്സരങ്ങൾ ജയിച്ച് ഓസ്ട്രേലിയ ശക്തമായ തിരിച്ചുവർവ് നടത്തിയത്

ആരാധകർക്ക് നിരാശ പകർന്ന് ഇന്ത്യൻ താരം എം

പന്തിന് ഇന്ന് ഒരു അവസരം കൂടി നൽകുമെന്നാണ് കരുതപ്പെടുന്നത് ന്യൂസ്ഡെസ്ക് ആകാശവാണി